ൾ ൽ ൾ റഫേൽ യുദ്ധവിമാന ഇടപാടിന്റെ വിശദാംശങ്ങൾ മുദ്രവെച്ച കവറിൽ സുപ്രീംകോടതിയിൽ സമർപ്പിക്കാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്രത്തിന് നിർദേശം നൽകി

റഫേൽ ഇടപാടിൽ വൻ അഴിമതി ഉണ്ടായതായി ആരോപിച്ച് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ് റഫേൽ പ്രവിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട നട്ടപടി ക്രമങ്ങളാണ് കോടതിക്കു വേണ്ടതെന്നും അതിന്റെ സാങ്കേതിക കാര്യങ്ങളോ വില നിർണയത്തിലെ തീരുമാനങ്ങളോ ആവശ്യമി ല്ലെന്നും ചീഫ് ജസ്റ്റിസ് രജ്ഞൻ ഗോഗൊയ് നേതൃത്വം നൽകുന്ന ബെഞ്ച് വൃക്തമാക്കി ഹർജിയിൽ ഉന്നിയിച്ച ആരോപണങ്ങൾ മുഖവിലയ്ക്കെടുക്കില്ലെന്നും ബെഞ്ച് അറിയിച്ചു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഹർജികൾ സമർപ്പിച്ചിരിക്കു ന്നതെന്നും അത്തരം മുതലെടുപ്പു കൾ അംഗീകരിക്കരുതെന്നും അറ്റോർണി ജനറൽ കോടതിയോട് ആവശ്യപ്പെട്ടു ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിക്ക് നോട്ടീസ് അയക്കേണ്ട തില്ലെന്നും ഡിവിഷൻ ബെഞ്ച് തീരുമാനിച്ചു ദൈവത്തിൽ വിശ്വസിക്കാനും വിശ്വാസമനു സരിച്ച് ആചാരാനുഷ്ടാനങ്ങൾ നടത്താനും പൌരന് ഭരണഘടന അനുവാദം നൽകുന്നുണ്ടെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പിഎസ് ശ്രീധരൻപിള്ള പറഞ്ഞു ആ വിശ്വാസത്തെ തകർക്കാനാണ് പല ഭാഗത്തും ഇപ്പോൾ ശ്രമം നടക്കുന്നതെന്നും അദ്ദേഹം വൃക്തമാക്കി പന്തളത്ത് എൻഡിഎയുടെ ലോംഗ് മാർച്ച് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കു കയായിരുന്നു ശ്രീധരൻപിള്ള ശബരിമലയെ എതിർത്തവർക്കൊക്കെ കാലം തിരിച്ചടി നൽകിയിട്ടുണ്ട്

ശബരിമല പ്രശ്നത്തിൽ കേന്ദ്ര ഗവ ഓർഡിനൻസ് കൊണ്ടു വരണമെന്ന് എൻ ഡി എ നേതാവ് തുഷാർ വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു ബി ഡി ജെ എസ് വിശ്വാസ്പികൾക്കൊപ്പ മാണെന്നും എൻ ഡി എയുടെ സമരത്തിൽ പാർട്ടി പങ്കെടുക്കു മെന്നും അദ്ദേഹം വൃക്തമാക്കി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം കൂടിയാലോചന ഇല്ലാത്തതു കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു പന്തളത്ത് എൻ ഡി എയുടെ ശബരിമല സംരക്ഷണയാത്രയുടെ പ്രാരംഭ ചടങ്ങിൽ പങ്കെടുക്കുക യായിരുന്നു തുഷാർ പന്തളത്തെ മണികണ്ഠനാൽത്തറയിൽ നിന്നാരം ഭിച്ച യാത്ര വൈകീട്ട് അടൂരിൽ സമാപിക്കും എൻ ഡി എ നേതാക്കൾ പന്തളം കൊട്ടാരം നിർവാഹക സംഘം ഗുരു സ്വാമിമാർ വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് ദ് സുപ്രീംകോടതി വിധിയനുസരിച്ച് ശബരിമലയിൽ എത്തുന്ന സ്ത്രീകളെ ആർക്കും തടയാനാവില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു

ഇക്കാരൃത്തിൽ എൻ എസ് എസ് സ്വീകരിച്ച നിലപാട് ശരിയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്നാൽ ഇതിന്റെ പേരിൽ തെരുവിലിറങ്ങി സമരം ചെയ്യുന്നതിനോട് യോജിക്കാ നാവില്ല ഈ വിഷയത്തിൽ ആരുമായും ചർച്ച നടത്താൻ ഗവ തയ്യാറാണ് സ്ത്രീ പ്രവേശനം അനുവദിച്ചതിൽ വിശ്വാസികൾ ക്കുണ്ടായി വികാരം മാനിക്കുന്നുണ്ട് വർഷങ്ങളായി തുടരുന്ന ആചാരങ്ങളിൽ മാറ്റം വരുത്തുമ്പോൾ വിശ്വാസികളിൽ ആശങ്കകൾ സ്വാഭാവികമാണ് അയിത്ത ജാതിക്കാർക്ക് ക്ഷേത്ര പ്രവേശനം അനുവദിച്ചപ്പോൾ സവർണ്ണ സമൂഹത്തിൽ ഇത്തരം പ്രതികരണം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഭരണഘടന യെയും കോടതി വിധികളെയും അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും മന്ത്രി പറഞ്ഞു എസ് എൻ ഡി പി സംസ്ഥാന കൌൺസിൽ നാളെ ചേർത്തലയിൽ ചേരും ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഹൈന്ദവ സർഘടനകൾ നടത്തുന്ന സമരത്തിനെതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്ന കാര്യം യോഗം ചർച്ച ചെയ്യും ശബരിമല വിധിക്ക് എതിരെ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ റോഡ് ഉപരോധിച്ചു

ചിലയിടങ്ങളിൽ നേരിയ സംഘർഷം ഉണ്ടായതൊഴിച്ചാൽ കാര്യമായ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലും റോഡ് ഉപരോധിച്ചിരുന്നു ശബരിമല തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ദേവസ്വം ബോർഡ് യോഗം തിരുവനന്ത പുരത്ത് ചേരുന്നു ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകേണ്ടതില്ലെന്ന് ദേവസ്വം ബോർഡും ഗവൺ മെന്റും തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് യോഗം അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന ശബരിമല ഉന്നതതാധികാര യോഗത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ യോഗത്തിൽ ചർച്ചയാകും പമ്പയിലെ നിർമാണ പുരോഗ്തിയും യോഗം വിലയിരുത്തും

അങ്ങനെ ഒരു സംഭവം നടന്നതായി ഓർമയില്ലെന്നും താൻ അത്തരത്തിൽ പെരുമാറുന്ന ആളല്ലെന്നും ടെസ് ജോസഫ് തെറ്റിദ്ധരിച്ച താകാമെന്നും ്അദ്ദേഹം തിരുവനന്തപുരത്ത് വൃക്തമാക്കി

ദുരനുഭവങ്ങൾ ഉണ്ടായാൽ പെൺകുട്ടികൾ അപ്പോൾ തന്നെ അത് തുറന്നുപറയണമെന്നും മുകേഷ് പറഞ്ഞു ആരോപണമുന്നയിച്ച പെൺകുട്ടിക്ക് എതിരെ മാനനഷ്ടക്കേസ് നൽകുമോ എന്ന ചോദ്യത്തിന് അക്കാര്യം പാർട്ടിയുമായി ആലോചിച്ച ശേഷമേ തീരുമാനിക്കൂ വെന്നായിരുന്നു മുകേഷിന്റെ പ്രതികരണം മീ ടു വിവാദത്തിൽ ആര് പരാതി നൽകിയാലും അനേഷിക്കുമെന്ന് മന്ത്രി എ കെ ബാലൻ അറിയിച്ചു മുകേഷിനെതിരായ പരാതിയെ കുറിച്ചറിയില്ലെന്നും പഴയ സംഭവമാണ് അതെന്നും അദ്ദേഹം തിരുവനന്ത പുരത്ത് പറഞ്ഞു കുറ്റം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടു വരുമെന്നും മന്ത്രി പറഞ്ഞു അതിനിടെ മുകേഷ് രാജിവെക്കണമെന്നാ വശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലത്തെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഡി സി സി പ്രസിഡണ്ട് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു

സഹകാരി സമൂഹം ബാങ്കിനെ സ്വീകരിക്കുമെന്നും ഇക്കാര്യത്തിൽ ആശങ്കയില്ലെന്നും മ്യൂന്തി കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ബാങ്ക് രൂപീകരണ ത്തിന് പ്രത്യേക ഓർഡിനൻസ് പുറപ്പെടുവിക്കേണ്ട ആവശ്യമി ല്ലെന്നും മന്ത്രി വ്യക്തമാക്കി ബ്രൂവറി അനുമതി സംബന്ധിച്ച് സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താത്പര്യ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി ലൈസൻസ് നൽകിയതിൽ ചട്ട ലംഘനം ഉണ്ടായെങ്കിൽ ഒഅത് തിരുത്തി തീരുമാനം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന വിലയിരുത്തലോ ടെയാണ് ഡിവിഷൻ ബെഞ്ച് ഹർജി തീർപ്പാക്കിയത്

എന്നാൽ പെട്രോൾ വിലയിൽ മാറ്റമില്ല

ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ ട്രെയിൻ പാളംതെറ്റി ഏഴ് പേർ മരിച്ചു നിരവധി പേർക്ക് പരുക്കേറ്റു ഡൽഹിയിൽ നിന്ന് റായ്ബറേലിയിലേക്ക് വരികയായിരുന്ന ന്യൂ ഫറാക്ക എക് സ്പ്രസ് ട്രെയിനാണ് പാളംതെറ്റിയത് റായ്ബറേലിക്ക് അടുത്ത ഹർചന്ദ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പുലർച്ചെ ആറു മണിയോടെയായിരുന്നു അപകടം

മരിച്ചവരുടെ ആശ്രിതർക്ക് റെയിൽവെ അഞ്ച് ലക്ഷം രൂപ വീതവും ഉത്തർപ്രദേശ് ഗവ രണ്ട് ലക്ഷം രൂപ വീതവും ധനസഹായം അനുവദിച്ചിട്ടുണ്ട് ഗുരുതര്മായി പരുക്കേറ്റവർക്ക് റെയിൽവേ ഒരു ലക്ഷം രൂപ നൽകും അപടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അതീവ ദൂഖം അറിയിച്ചു

ഉപതെരഞ്ഞെടുപ്പിന് ക്രമീകര ണങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ് കരൻ അറിയിച്ചു

വിദ്യാർത്ഥികൾ പകുതി നിരക്കിൽ പാസ് നൽകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു സമഗ്ര സംഭാവനക്ക് ഇത്തവണ പുരസ്കാരം നൽകില്ലെന്നും മന്ത്രി അറിയിച്ചു ചെലവ് ചുരുക്കിയാ യിരിക്കും ഇത്തവണ മേള നടത്തുക

സംസ്ഥാനത്തുണ്ടായ പ്രളയത്തെ തുടർന്ന് ഇത്തവണ മേള മാറ്റിവെയ്ക്കാൻ ആദ്യം ആലോചിച്ചിരുന്നെങ്കിലും പിന്നീട് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു സ്ത്രീകളെ മുൻ നിർത്തി പുരുഷ്പന്മാർ വനിതാ കമ്മീഷനു പരാതി നൽകുന്ന പ്രവണത വർദ്ധിക്കുന്ന തായി സംസ്ഥാന വനിതാ കമ്മീഷൻ പറഞ്ഞു പല കേസുകളും കമ്മീഷന് മുന്നിലെത്തുമ്പോൾ പരാതി സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾപോലും നൽകാൻ പല സ്ത്രീകൾക്കും കഴിയാറില്ലെന്നു് കമ്മീഷൻ അദ്ധ്യക്ഷ എം

ഇത്തരം കേസുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പാലക്കാട് നടന്ന മെഗാ അദാലത്തിൽ കമ്മീഷൻ വ്യെക്തമാക്കി

മുത്തലാഖ് ഓർഡിനൻസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമസ്ത കേരള ജംഇയത്തൂൽ ഉലമയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപതി രാം നാഥ് കോവിന്ദിന് പത്ത് ലക്ഷം പേർ ഒപ്പിട്ട ഭീമ ഹർജി സമർപ്പിക്കുമെന്ന് നേതാക്കൾ കോഴിക്കോട്ട് അറിയിച്ചു ഇതിനായി വെള്ളിയാഴ്ച പള്ളികൾ കേന്ദ്രീകരിച്ച് ഒപ്പ് ശേഖരണം നടത്തുമെന്ന് അവർ പറഞ്ഞു സംസ്ഥാനത്തെ എംബിബിഎസ് ബിഡിഎസ് ഒഴികെ കോഴ് സുകളിലേക്ക് നാലാംഘട്ട കേന്ദ്രീകൃത അലോട്ട്മെന്റ് നടപടികൾ തുടങ്ങി ആയുർവേദ ഹോമിയോപതി അഗ്രികൾച്ചർ ഫോറസ്ട്രി എന്നിവയിൽ നിലവിലെ ഒഴിവുകളിലേക്കും സിദ്ധ വിഭാഗത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഒരു കോളജിലേക്കും അലോട്ട് മെന്റ് നടത്തും ഓപ്ഷൻ പുനക്രമീകരിക്കാനും റദ്ദാക്കാനും നാളെ മുതൽ ഞായറാഴ്ച വരെ സമയം അനുവദിച്ചിട്ടുണ്ട്